ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഹൈദരാബാദ് സൺറൈസേഴ്സുമായി ഏറ്റുമുട്ടും

നാളെ നിശബ്ദ പ്രചാരണമാണ്

വൈകിട്ട് നടക്കുന്ന കൊട്ടിക്കലാശം കൊഴുപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള രാഷ്ട്രീയനേതാക്കൾക്കെല്ലാം ഇന്നും തിരക്കിട്ട പ്രചാരണപരിപാടികളാണ്

നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ കനോജ് ഹാർദോയ് സീതാപൂർ എന്നിവിടങ്ങളിലെ തെരഞ്ഞടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും

പി അധ്യക്ഷ മായാവതി മധ്യപ്രദേശിലെ റേവയിലും പൊതുസമ്മേളനത്തിൽ പ്ണ്കടുക്കും

കനത്ത സുരക്ഷയിലാണ് ഇവിടെ വീണ്ടും വോട്ടെടുപ്പ് നടക്കുന്നത്

സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും

ഡി പി പാർട്ടിക്കുള്ള പിന്തുണ ബി ജെ പി കഴിഞ്ഞ വർഷം പിൻവലിച്ചിരുന്നു കൂട്ടുമന്ത്രിസഭ തകർന്നതു മുതൽ സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലാണ്

ഇന്റ സൌകര്യം ഉപയോഗപ്പെടുത്താൻ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഭിന്നശേഷിക്കാരായ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു

റഫാൽ ഇടപാട് കടം എഴുതിത്തള്ളൽ എന്നിവയുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമച്ച പ്രസ്താവനകളാണ് രാഹുൽ ഉന്നയിക്കുന്നത്

ജെ

കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ

വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ചതായും വിവരം യാത്രക്കാരെ ധരിപ്പിച്ചിട്ടുള്ളതായും ചെയർമാൻ പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കിഴക്കൻ മേഖലയിലെ നിന്റാപൂരിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ ഗ്രൂപ്പുകാരുടെ ഒളിസങ്കേതത്തിൽ സൈന്യം അർദ്ധരാത്രി നടത്തിയ റെയിഡിലാണ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് ഇന്റലിജൻസ് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദികളുടെ ഒളിസങ്കേതം സൈനൃം റെയിഡ് ചെയ്യുന്നതിനിടെ വെടിവയ്പ്പിലാണ് രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത്

രാജ്യത്ത് ഉടനീളം തെരച്ചിൽ തുടരുകയാണ്

ശ്രീലങ്കയിലെ തങ്ങളുടെ ഉദ്യോഗസ്ഥരോട് മടങ്ങിയെത്താൻ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകി

ഇതേ തുടർന്ന് ഫാനി ചുഴലിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാകേന്ദ്രം വക്താവ് ഡോ

വടക്കുപടിഞ്ഞാറൻ ദിശയിലേക്ക് പോകുന്ന ന്യൂനമർദ്ദം ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട് ചൊവ്വാഴ്ച ആന്ധ്ര തമിഴ്നാട് തീരത്തെത്തുന്നതിനാൽ ഈ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ ക്വിർദ്ദേശവും നൽകിയിട്ടുണ്ട് കേരളത്തിൽ തിങ്കളാഴ്ച മുതൽ മൂന്ന് ട്ട്രിപ്സം ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനു പോയവർ നാളെയ്ക്കകം ത്രിച്ചെത്തണമെന്ന് കാലവാസ്ഥാകേന്ദ്രം കർശന നിർദേശം നൽക്കി

ഇതോടെ പോയിന്റ് പട്ടികയിൽ ചെന്നൈ ഒന്നാമതും മുംബൈ രണ്ടാമതുമായി

ബി ഐ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു

ബി ഐ അന്വേഷണത്തിന് ഗവൺമെന്റ് ശുപാർശ ചെയ്തത്

സാമ്പത്തിക കാരണങ്ങളാൽ നൂടപ്പട്ടികൾ വൈകാനിടയാകരുതെന്നും കാനഡയിലെ ഇന്ത്യൻ ീസ്ഥാനപതി വികാസ് സ്വരൂപിന് ശ്രീമതി സ്വരാജ് നിർദ്ദേശം നൽകി

ഇദ്ദേഹത്തിന്റെ മൂത്തമകൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്

കഴിഞ്ഞ മാസം അറസ്റ്റിലായ നിരവ് മോദി നിലവിൽ ലണ്ടനിൽ ജയിലിലാണ് ജയിലിൽ നിന്നും വീഡിയോ കോൺഫറൻസിംഗ് മുഖേനയാണ് ഇയാൾ വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായത്

ജി

നാല് ആഴ്ചയ്ക്കുകം വിശദമായ റിപ്പോർട്ട് നൽകണമെന്നും കമ്മീഷൻ ഡി ജിഷിയോട്ട് ആവശ്യപ്പെട്ടു

യാത്രക്കാർ സഞ്ചരിച്ചിരുന്ന പിക്അപ് വാനാണ് അപകടത്തിൽപെട്ടത്

ആപ്പ് ആൻഡ്രോയിഡ് ഐ ഒ എസ് ഫ്ളാറ്റ് ഫോമുകളിൽ ലഭ്യമാണ്